സ്കോട് മോറിസണും തമ്മിലുള്ള ആദ്യ വിർച്ചൽ ഉച്ചകോടിയിൽ ഏഴ് കരാറുകൾ ഒപ്പു വച്ചു

വെല്ലുവിളിയുടെ കാലത്ത് മൂഖ്യ്മെന്ന് പ്രധാനമന്ത്രി നരേന്ദ്ര മോദി

രോഗ മുക്തി നേടിയവരുടെ എണ്ണം ഒരു ലക്ഷം കടന്നു

ആന ചരിഞ്ഞ സംഭവത്തിൽ കർശന നടപടി ഉണ്ടാകുമെന്ന് കേന്ദ്ര മന്ത്രി പ്രകാശ് ജാവ്ദേക്കർ

പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി സ്കോട്ട്മോറിസണുമായി നടത്തിയ ആദ്യ വിർച്ചൽ ഉച്ചകോടിയിലാണ് തീരുമാനം ഏഴ് കരാറുകളിലും ഒപ്പു വച്ചു കൂടുതൽ വിവരങ്ങളുമായി നരേന്ദ്ര മോഹൻ വോയ്സ് പരസ്പര ധാരണ വിശ്വാസം പൊതുവായ താത്പര്യങ്ങൾ ജനാധിപത്യ മൂല്യങ്ങൾ നിയമ വാഴ്ച എന്നിവ അടിസ്ഥാനമാക്കിയാണ് ബന്ധം തന്ത്രപരമായ സമഗ്ര പങ്കാളിത്തത്തിലേക്ക് ഉയർത്തുന്നത്

ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥ സൈബർ സുരക്ഷ നവ സാങ്കേതിക വിദ്യ എന്നിവയിലും ചേർന്ന് പ്രവർത്തിക്കും

ഭീകര പ്രവർത്തനത്തെ ഇരു രാജ്യങ്ങളും അപലപിച്ചു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഖനന മേഖലയിലും ധാതു സംസ്കരണത്തിലും ചരക്ക് കടത്തിലും ഇരു രാജ്യങ്ങളും സഹകരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് പൊതു ഭരണ രംഗത്തും തൊഴിൽ പഠന പരിശീലന മേഖലയിലും ജലവിഭവ രംഗത്തും സഹകരിക്കാനും കരാർ ഒപ്പിട്ടു

സൌഹൃദം ഊട്ടിയുറപ്പിക്കാൻ വിപുലമായ സാധ്യതകളാണുള്ളത്

മഹാമാരിക്കിടെ ഓസ്ട്രേലിയയിലെ ഇന്തൃൻ സമൂഹത്തെയും വിദ്യാർത്ഥികളെയും സംരക്ഷിച്ചതിന് ശ്രീ മോദി ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയ്ക്ക് നന്ദി അറിയിച്ചു കോവിഡ് കാലത്ത് മികച്ച നേതൃശേഷി പ്രകടിപ്പിക്കുന്ന ഇന്തൃൻ പ്രധാനമന്ത്രിയെ സ്കോട് മോറിസൺ അഭിനന്ദിച്ചു

രോഗബധിതർ ഏറ്റവും കൂടുതലുള്ള മഹാരാഷ്ട്രയിലാണ്

പാലക്കാട് സ്വദേശി മീനാക്ഷിയിമ്മാൾ കൊല്ലം സ്വദേശി സേവ്യർ മലപ്പുറം സ്വദേശി ഷബ്നാസ് ്എന്നിവരാണ് ഇന്ന് മരണമടഞ്ഞത്

രോഗികളുടെ എണ്ണത്തിൽ അമേരിക്കയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തുള്ള ബ്രസീലിൽ രോഗബാധിതരുടെ എണ്ണം ആറ് ലക്ഷത്തോടടുക്കുന്നു

ഇന്ത്യൻ സംസ്ക്കാരത്തിന് ചേർന്നതല്ല ഇത്തരത്തിൽ മൃഗങ്ങളെ കൊല്ലുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു

ജീവനക്കാരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പരിഗണിച്ചായിരുന്നു ഇത്

ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന തൊഴിൽ ദാതാക്കളുക്ട് പ്ലരവ് ചെലവ് കണക്ക് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകണ്ട്മെന്നും കേന്ദ്രം സുപ്രീം കോടതിയോട് അഭ്യർത്ഥിച്ചു

മൊഹമ്മദ് ബാർകിൻഡോയുമായി പെട്രോളിയം മന്ത്രി ധർമേന്ദ്ര പ്രധാൻ വീഡിയോ കോൺഫറൻസിംഗ് നടത്തി കോവിഡ് മഹാമാരിക്കിടെ ആഗോള ഊർജ്ജ വിപണിയിലെ കാര്യങ്ങളെ കേന്ദ്രീകരിച്ചായിരുന്നു ചർച്ചു